ത ശാരീരിക അകലം പാലിക്കൽ ഉൾപ്പെടെ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കർശന പൊലീസ് നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ത കേരളാ ഡയലോഗ് സംവാദ പരിപാടിയ്ക്ക് ഇന്ന് തുടക്കമാകും

വാർത്തകൾ വിശദമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവാസികൾക്കായി റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റിംഗ് ഇന്ന് ആരംഭിക്കും

കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത എല്ലാ വിദേശ യാത്രക്കാരും ടെസ്റ്റിന് വിധേയരാവണം ഫലം വരുന്നതുവരെ ഇവരെ പുറത്തുപോകാൻ അനുവദിക്കില്ല ഫലം പോസിറ്റീവ് ആവുന്ന യാത്രക്കാരെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയരാക്കും

എ ഇയിൽ കോവിഡ് ടെസ്റ്റ് നിർബന്ധമായതിനാൽ യാത്രികർ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി ഖത്തറിൽ യാത്രികർക്ക് നിർദ്ദിഷ്ട മൊബൈൽ ആപ്പിൽ ഗ്രീൻ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം ഇവരും ആന്റിബോഡി ടെസ്റ്റിന് വിധേയരാവണം

അതുവരെ യാത്രികർ വിമാനത്താവളങ്ങളിൽ കാത്തു നിൽക്കേണ്ടി വരും രുര ശാരീരിക അകലം പാലിക്കൽ ഉൾപ്പെടെ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കാൻ പൊലീസ് നടപടി ഊർജ്ജിതമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു കടകളിലും ചന്തകളിലും ആളുകൾ കൂട്ടംകൂടുന്നത് അനുവദിക്കില്ല

ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുടെ ഫോട്ടോയും മറ്റ് വിവരങ്ങളും പൊലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിന് അയച്ചുനൽകാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു കൂടുതൽ വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ് രുമ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ വിമാനത്താവളങ്ങളിൽ നിന്ന് നേരിട്ട് വീടുകളിലേക്ക് പോകണം

ഇക്കാര്യം നിരീക്ഷിക്കാൻ പൊലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ഓരോ ദിവസത്തെയും യാത്രാ വിവരങ്ങൾ എല്ലാവരും എഴുതി സൂക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സഞ്ചരിച്ച വാഹനങ്ങളുടെ നമ്പർ സമയം സന്ദർശിച്ച സ്ഥലങ്ങൾ ഹോട്ടലിൽ പോയെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ എന്നിവ ഇപ്രകാരം രേഖപ്പെടുത്തേണ്ടതാണ് ഓഗസ്റ്റ് അവസാനത്തോടെ സംസ്ഥാനത്ത് ഉണ്ടാകാവുന്ന കോവിഡ് കേസുകളുടെ എണ്ണം വലുതാണ് ഇപ്പോഴത്തെ അവസ്ഥ പരിഗണിച്ച് തയ്യാറാക്കിയ സൂചന കൂടുകയോ കുറയുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതിനാൽ നിയന്ത്രണങ്ങൾ പാലിക്കാനും തീരുമാനങ്ങൾക്ക് പിന്തുണ നൽകാനും ജനങ്ങൾ തയ്യാറാകണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു ന്യൂസ് ഡസ്ക് ആകാശവാണി

അഞ്ച് പ്രദേശങ്ങളെ ഇന്നലെ കണ്ടെയ്ൻമെന്റ് സോണിൽനിന്ന് ഒഴിവാക്കി

രുര കോവിഡ് ചികിത്സയ്ക്ക് രോഗികളുടെ എണ്ണമനുസരിച്ച് സജ്ജീകരണങ്ങളൊരുക്കാൻ മൂന്ന് പ്ലാനുകൾ തയ്യാറാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

അഞ്ച് വിമാന കമ്പനികളാണ് സർവ്വീസ് നടത്തിയത്

എസ് ജലാശ്വ ഇറാനിൽ നിന്ന് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലേക്ക് ഇന്നലെ യാത്ര തിരിച്ചു

ആദ്യ എപ്പിസോഡിൽ കേരളം ഭാവി വികസന മാർഗ്ഗങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് ലോകപ്രശസ്തരായ അമർത്യാസെൻ സൌമ്യ സ്വാമിനാഥൻ തുടങ്ങിയവർ സംസാരിക്കും പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ എൻ റാം ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ തുടങ്ങിയവർ മോഡറേറ്റ് ചെയ്യും വൈകിട്ട് നാലിനായിരിക്കും സംപ്രേഷണം

ലഹരി ശീലത്തിന്റെ മിഥ്യാലോകത്തേയ്ക്ക് കാലിടറി വീഴുന്ന എണ്ണമറ്റ മനുഷ്യ ജീവിതങ്ങളെ നേർവഴിയിലേക്ക് നയിക്കാൻ ലക്ഷ്യമിട്ടാണ് ഓരോ വർഷവും ഐക്യരാഷ്ട്ര സംഘടന ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത് ന്യൂസ് ഡസ്ക്കിൽ നിന്ന് ഹബീബ് റഹ്മാൻ രേര ലഹരി വസ്തുക്കളുടെ ഉപയോഗം സൃഷ്ടിക്കുന്ന മാരക വിപത്തിനെതിരെ സമൂഹം ഒരുമിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഓർമ്മിപ്പിക്കുന്നത്

ലഹരി ഉപയോഗത്തിന്റെ ആഗോളതല പ്രശ്നങ്ങൾ തിരിച്ചറിയാനും ആരോഗ്യ ഭരണ സുരക്ഷാ മേഖലകളിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്താനും ദിനാചരണം ലക്ഷ്യമിടുന്നു ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിപുലമായ ബോധവൽക്കരണം ലഹരിയുടെ ആസക്തിയിലേക്ക് വഴുതി വീഴാതെ യുവതലമുറയെ ജീവിത ലഹരിയിലേക്ക് നയിക്കാനുദ്ദേശിക്കുന്ന ലഹരി വർജ്ജന ദൌത്യമാണ് വിമുക്തി വഴി ഗവൺമെന്റ് നടത്തി വരുന്നത്

ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സമൂഹം പ്രധാന ഉത്തരവാദിത്വമായി ഏറ്റെടുക്കണമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു

ജീവനും ജീവിതവും തകർക്കുന്ന ലഹരി വസ്തുക്കളിൽനിന്ന് വിട്ടുനിൽക്കാനും ആരോഗ്യ സമൂഹത്തെ വാർത്തെടുക്കാനും ഈ ദിനം പ്രചോദനമാകട്ടെ ദരദ ലോക്ഡൌൺ കാലത്തെ പഠന സംബന്ധ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് മാനസിക സാമൂഹ്യ ആരോഗ്യ പദ്ധതി ഗവൺമെന്റ് നടപ്പാക്കും

കെ ശൈലജ അറിയിച്ചു

ബി എസ്

ഉപരിപഠന പ്രവേശന പരീക്ഷകൾക്ക് ഇന്റേണൽ മാർക്ക് അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഫലം പരിഗണിക്കാമെന്ന് സി ബി എസ് ഇ ഇന്നലെ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു